സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

നാളെ തുടക്കം

താരം റാഫേൽ നദാൽ ചാമ്പ്യൻ

ഐസ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് സ്തൊവീനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത് സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഐസ്ലാൻഡിൽ എത്തുന്ന രാഷ്ട്രപതി ഐസ്ലാൻഡ് പ്രസിഡന്റ് ഗുഡ്നി ജോഹ്നാസനുമായും പ്രധാനമന്ത്രി കത്രീൻ ജാക്കോബ്സുമായും ചർച്ച നടത്തും രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി മറ്റന്നാൾ സ്വിറ്റ്സർലാൻഡിൽ എത്തും

ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്ലൊവീനിയയിലേക്കുള്ള ആദ്യ സന്ദർശനം കൂടിയാണ് ഇത്

കൂടുതൽ വിവരങ്ങളുമായി ്നന്ദകുമാർ

അടുത്ത രണ്ടു വർഷത്തേക്ക് അംഗരാഷ്ട്രങ്ങൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സമ്മേളനം ആസൂത്രണം ചെയ്യും ഭൂമി വീണ്ടെടുക്കലിനുള്ള വിവിധ പദ്ധതികളെക്കുറിച്ച് വിവിധരാജ്യ ങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നിർദേശങ്ങൾ പരിഗണിച്ചായിരിക്കും ഇത്

ലോകത്തിന്റെ ശ്വാസകോശമായ ആമസോൺ മഴക്കാടുകളിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ സമ്മേളനം ആശങ്ക രേഖപ്പെടുത്തി അടുത്ത രണ്ട് വർഷത്തേയ്ക്ക് സംഘനയുടെ അധ്യക്ഷ സ്ഥാനത്തുള്ള ഇന്ത്യയിലാണ് ഇത്തവണത്തെ സമ്മേളനം

സംഘടനകളുടെ പ്രതിനിധികൾ ശാസ്ത്രജ്ഞർ വനിതാ യുവജന സംഘടനകളിൽപ്പെട്ടവർ തുടങ്ങിയവർ സമ്മേളനത്തിന്റെ ഭാഗമാകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എയുടെ സഖ്യകക്ഷിയായ വടക്കു കിഴക്കൻ സഖ്യത്തിന്റെ നാലാമത് യോഗം അസ്സമിലെ ഗുവാഹത്തിയിൽ ഇന്ന് ചേരും ബിജെപി പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായുടെ നേതൃത്വത്തില്ലാണ് യോഗം ചേരുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൂം മുതിർന്ന നേതാക്കളും മന്ത്രിമാരും ചെയർപേഴ്സൺമാരും യോഗ്നത്തിൽ പങ്കെടുക്കും വടക്കു കിഴക്കൻ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഈ യോഗം വഴി ഉദ്ദേശിക്കുന്നത്

എ

എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര എണ്ണ പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ യു

ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാര പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്

്ധർമ്മേന്ദ്രപ്രധാൻ സൌദി അറേബ്യയും ഖത്തറും സന്ദർശിക്കും

ദീർഘകാലം ഊർജ്ജമന്ത്രിയായിരുന്ന ഖാലിദ് അൽ ഫാലിയെ ഒഴിവാക്കിയാണ് സൽമാൻ രാജകുമാരനെ ഈ പദവിയിലേക്ക് നിയോഗിച്ചത്

ലോകത്തെ എണ്ണ ഉൽപാദക ശക്തികളിലൊന്നായ സൌദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണ്ണായകമായ ഒരു തീരുമാനം കൂടിയാണ് പുതിയതായി സ്ഥാനമേറ്റ അബ്ദുൾ അസീസ് ബിൻ സൽമാനെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ ജിദ്ദയിൽ സന്ദർശിച്ചു

എൻ എ ഫലം ഫോറൻസിക് സയൻസ് ലബോറട്ടറി അധികൃതർ മുംബൈ പോലീസിന് കൈമാറി

തദ്വിയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന സംശയങ്ങൾക്കിടെയാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് മുംബൈയിലെ സ്വകാര്യ മെഡിക്കൽ കോളജിലെ പിജി വിദ്യാർത്ഥിയായ തദ്വിയെ ഹോസ്റ്റലിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുക്യായിരുന്നു

നാളെയാണ് ഉത്രാടപ്പാച്ചിൽ ബുധനാഴ്ച മീലയാളികൾ തിരുവോണമുണ്ണും ടൂറിസം വകുപ്പിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തിരിതെളിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം നിശാഗന്ധിയിൽ വാരാഘോഷത്തിന് തുടക്കമിടും

കേരളത്തിന്റെ സംസ്ക്കാരവും പൈതൃകവും വിളിച്ചോതുന്ന വർണക്കാഴ്ചകളാകും ഏഴു ദിവസങ്ങളിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്നത്

തന്നെ തന്നെ മറന്നുപോകുന്ന മറവിരോഗം നമ്മുടെ സമൂഹത്തിന് ബാധിക്കാതിരിക്കാനുള്ള അവസരമായി ഓണത്തെ മാറ്റണമെന്ന് സ്പീക്കർ പറഞ്ഞു നമ്മുടെ സാംസ്കാരിക പൈതൃകം വിളംബരം ചെയ്യാനുള്ള അവസരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു

ഫ്ളാറ്റിലെ താമസക്കാരെ ഉടൻ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ജില്ലാ കളകൂർക്കും മരട് നഗരസഭയ്ക്കും കത്ത് നൽകി

ഇക്കാര്യത്തിൽ മരട് നഗരസഭയ്ക്ക് എല്ലാ സഹായവും ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് താമസക്കാരുടെ പുനരധിവാസം ജില്ലാ കളക്ടറുമായി ആലോചിച്ചു തീരുമാനിക്കണമെന്നും ഗവൺമെന്റ് നിർദ്ദേശിച്ചു

കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലും ശാന്തിഗിരി കൈലാസം പടിയിലുമായി രണ്ട് വീട് ഷൂർണ്ണ്മായും രണ്ട് വീട് ഭാഗികമായും തകർന്നു മസ്ക്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയെ തുടർന്ന് കണ്ണൂരിൽ ഇറക്കാനാവാത്തതിനാൽ കൊച്ചിയിലിറക്കി മഴ മാറിയതിന് ശേഷം വിമാനം കണ്ണൂരിലെത്തി

നാളെ പുലർച്ചെ നടക്കുന്ന അഷ്ടദ്രവൃ മഹാഗണപതി ഹോമത്തോടെ ഓണക്കാല പൂജകൾക്ക് തുടക്കമാകും

സമനില പ്രതീക്ഷിച്ച് കളിച്ച ഇംഗ്ലണ്ട് അഞ്ചാം ദിനം അവസാന സെഷനിൽ തോൽവി സമ്മതിക്കുകയായിരുന്നു

നാല് വിക്കറ്റുമായി കമ്മിൻസും രണ്ട് പേരെ വീതം പുറത്താക്കി ഹേസൽവുഡുക്കില്ലിയോണുമാണ് ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ എറിഞ്ഞിട്ടത്

അർധ സ്െഞ്ചുറി നേടിയ ജോ ഡെൻലിയെ ലിയോണും മടക്കിയതോടെ ഇംഗ്ലണ്ട് തോൽവി ഉറപ്പിച്ചതാണ് എന്നാൽ ആറാം വിക്കറ്റിൽ ജോണി ബെയ്ർസ്റ്റോയും ജോസ് ്ബട്ലറും ഇംഗ്ലണ്ടിന്റെ ആയുസ് നീട്ടിനൽകി

ആദ്യ ഇന്നിംഗ്സിലേതിന് സമാനമായി സ്റ്റീവ് സ്മിത്തിന്റെ തകർപ്പൻ ബാറ്റിംഗാണ് രണ്ടാം ഇന്നിംഗ് സിലും ഓസീസിന് മികച്ച ലീഡ് ഉറപ്പാക്കിയത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് ഓപ്പൺ ടെന്നീസിന്റെ പുരുഷവിഭാഗത്തിൽ സ്പെയിനിന്റെ റഫേൽ നദാൽ ചാമ്പ്യനായി ഫൈനലിൽ റഷ്യൻ താരം മെദ്വദേവിനെ പരാജയപ്പെടുത്തിയാണ് നദാൽ ചാമ്പ്യനായത് രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്കാണ് അദ്ദേഹത്തിന്റെ വിജയം

ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം സലാഹുദ്ദീൻ മേഖലയിൽ നിന്നും ഒൻപത് തീവ്രവാദികളെ പിടികൂടുകയും ചെയ്തു മേഖലയിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലും സുരക്ഷാ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്നതിനിടെയാണ് ഒൻപത് തീവ്രവാദികളെ പിടികൂടിയത്

രാജ്യത്ത് വിമാന ട്രെയിൻ സർപ്പീസുകളെയും കൊടുങ്കാറ്റ് കാര്യമായി ബാധിച്ചു